അഞ്ചു ദിവസത്തെ പര്യടനത്തിൽ റുവാണ്ട ഉഗാണ്ട ദക്ഷിണാഫ്രിക്ക എന്നീ രാഷ്ട്രങ്ങൾ പ്രധാനമന്ത്രി സന്ദർശിക്കും

റുവാണ്ട ഉഗാണ്ട എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരുമായി ശ്രീ മോദീ ഉഭയകക്ഷി ചർച്ച നടത്തും പ്രതിനിധിതല ചർച്ചയും ഇീന്ത്യൻ സമൂഹവുമായുള്ള സംവാദവും സന്ദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് റുവാണ്ടയിൽ കിഗാലി വംശീയ കൂട്ടക്കൊല സ്മാരകം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അവിടത്തെ സാമൂഹൃ സുരക്ഷ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കും നാളെ ഉഗാണ്ടൻ തലസ്ഥാനമായ കംപാലയിലെത്തുന്ന ശ്രീ മോദി അവിടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും ഉഗാണ്ടൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി ബുധനാഴ്ച ദക്ഷിണാഫ്രിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന പത്താമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും

അസംഖ്യം ഭാരതീയരിൽ ദേശസ്നേഹത്തിന്റെ സ്ഫുലിംഗങ്ങൾ പടർത്തിയ നേതാവായിരുന്നു ലോകമാനൃ തിലക് എന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു മാതൃരാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകവുമായി കൂട്ടിയിണക്കി സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ളവരെ അണിനിരത്താൻ ലോകമാനൃ തിലകിന് കഴിഞ്ഞതായി ശ്രീ മോദി അനുസ്മരിച്ചു

ശൂന്യവേളയിൽ പാർട്ടി നേതാക്കളായ വൈ എസ് ചൌധരി സി എം രമേശ് എന്നിവരാണ് വിഷയം ഉന്നയിച്ചത് വിഷയം സഭ നാളെ ചർച്ചയ്ക്കെടുക്കുമെന്ന് രാജൃസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു പറഞ്ഞു എന്നാൽ ടി ഡി പി എം പിമാരുടെ ബഹളം തുടർന്നതിനാൽ സഭ ഉച്ചവരെ നിർത്തിവയ്ക്കുന്നതായി ശ്രീ വെങ്കയ്യ നായിഡു അറിയിച്ചു നേരത്തെ സി ബി ഐ ഇന്റലിജൻസ് ബ്യൂറോ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പകപോക്കലിനായി ഗവൺമെന്റ് ദുരുപയോഗം ചെയ്യുന്നതായി കോൺഗ്രസിലെ ആനന്ദ് ശർമ ആരോപിച്ചു ആരോപണത്തെ ഭരണപക്ഷം ശക്തമായി എതിർത്തു അന്വേഷണ ഏജൻസികളുടെ മാനോവീര്യം തകർക്കരുതെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു പറഞ്ഞു

കോൺഗ്രസിന്റെ നീക്കം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ അനന്ത്കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്ര താൽപര്യം മുൻനിർത്തിയാണ് ഗവൺമെന്റ് ഫ്രാൻസുമായി റാഫേൽ ആയുധ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ആവശ്യം ഉന്നയിച്ച് സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം തുടരുമെന്ന് ടി ഡി പി എം ഷിമാർ പറഞ്ഞു

ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾക്കു നടപ്പിലാക്കാവുന്ന തരത്തിൽ നിയമം കൊണ്ടുവരുന്നതും ഗവൺമെന്റിന്റെ ഒരു പരിഗണനയിലാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വൃക്തമാക്കി

പരമോന്നത കോടതിയുടെ വിധി പഠിക്കുകയാണെന്നും ഇത് സംബന്ധിച്ച് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു

ശിവസേനയുമായുള്ള സഖ്യം സംബന്ധിച്ച് ഉന്നതതലയോഗത്തിൽ തീരുമാനം എടുക്കുമെന്നും എന്നാൽ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുമായി സംസ്ഥാന ബി ജെ പി ഘടകം മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ ബൂത്ത്തല പ്രവർത്തകരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഷാ

തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കാൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ ഉൾപ്പെടുത്തി നിർണായക സമിതിയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്

നവംബർ മാസത്തിൽ ഇത് നിലവിൽ വരും

ജനങ്ങളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശവും സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശവും തമ്മിൽ ഒരു സന്തുലനം സൃഷ്ടിച്ചുവേണം വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു ജന്തർമന്ദറിൽ എല്ലാവിധ ആൾക്കൂട്ട പരിപാടികളും നിരോധിച്ചുകൊണ്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിറിക്കിയിരുന്നു ഇതിനെതിരെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഉൾപ്പെടെ നിരവധി സംഘടനകൾ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഇക്കാര്യം വൃക്തമാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി അർച്ചന സതീഷ്

രാജ്യത്തെ ഏത് പോസ്റ്റോഫിസ് ശാഖകളിലോ പൊതുമേഖലാ ബാങ്കുകളിലോ പെൺകുട്ടികളുടെ പേരിൽ സുകന്യ സമൃദ്ധി യോജനയിൽ അക്കൌണ്ട് തുറക്കാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യമന്ത്രി നിതിഷ്കുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതലയോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്

കുട്ടിയുടെ ഇരട്ടസഹോദരൻ ഷിഗെല്ല ബാക്ടീരിയ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിൽസയിലാണ് വയറിളക്കത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിൽസ തേടിയ കുട്ടികളെ പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇ കോളി ബാക്ടീരിയയുടെ ഇനത്തിൽപെട്ട ഏറ്റവും അപകടകാരിയായ ബാക്ടീരിയയാണ് ഷിഗെല്ല

ഇന്തൃക്ക് വേണ്ടി രൂപീന്ദർ പാൽസിംഗ് സുരേന്ദർ കുമാർ മൻദീപ് സിംഗ് ആകാശ് ദീപ് സിംഗ് എന്നിവരാണ് ഗോളടിച്ചത് ഇന്ത്യോനേഷ്യയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി ടീം മികച്ച പ്രകടനം കാഴ്ചവച്ചതിൽ കോച്ച് ഹരേന്ദ്രസിങ് സംതൃപ്തി പ്രകടിപ്പിച്ചു

രാജ്യത്തെ കായിക പ്രതിഭകൾക്കായി കേന്ദ്ര കായിക മന്ത്രാലയം നടപ്പാക്കിവരുന്ന പദ്ധതിയാണിത് ഇന്ത്യൻ കായിക രംഗത്ത് നിരവധി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിഞ്ഞതായി കായികമന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ അഭിപ്രായപ്പെട്ടു

ടൊറന്റോയ്ക്ക് സമീപം ഡാൻഫോർത്ത് അവന്യൂവിൽ അക്രമി ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പിന്നീട് അക്രമിയെ പോലീസ് വധിച്ചു തീവ്രവാദിയാണോ ഇയാൾ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു